കർതാർപൂർ ഇടനാഴിയിൽ ഇന്ത്യൻ തീർത്ഥാടകർക്ക് വിസ രഹിത യാത്ര അനുവദിക്കാൻ ഇന്ത്യ പാക് ധാരണ

പാല ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി എട്ടുപേർ പത്രിക നൽകി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടേയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റേയും സാന്നിധൃത്തിലാണ് കരാറുകളിൽ ഒപ്പുവച്ചത്

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമാനതകളില്ലാത്തതും ഇരുവർക്കും ഗുണകരമായതുമാണെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു

ഇന്ത്യയിലെ ചെന്നൈ തുറമുഖവും റഷ്യൻ ഫെഡറേഷനിലെ വ്ളാഡിവോസ്റ്റോക്ക് തുറമുഖവും തമ്മിൽ സമുദ്രയാന വാർത്താവിനിമയ ബന്ധം വികസിപ്പിക്കുന്നതിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും റഷ്യൻ ഫെഡറേഷന്റെ ഗതാഗത മന്ത്രാലയവും തമ്മിലും ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു

ശ്രീനഗർ പോലീസുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് താഴ്വരയിലെ സമാധാനം തടസ്സപ്പെടുത്തുന്നതിനായി പാകിസ്ഥാൻ ആകുന്നത്രെ ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു കശ്മീരിൽ സമാധാനം ഇല്ലാതാക്കാനായി ഭീകരവാദികൾ തയ്യാറെടുത്തിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനിടെ കശ്മീരിൽ വലിയതോതിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ശ്രീ ധിലോൺ വ്യക്തമാക്കി പാകിസ്ഥാൻ സേനയുടെ നിർദ്ദേശ്പ്രകാരമാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നും ലഷ്കർ ഇ തൊയ്ബ ബന്ധം അംഗീകരിക്കുന്നതായും ഭീകരർ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ഇന്ത്യൻ സേന പുറത്തിറക്കിയിട്ടുണ്ട്

വടക്ക് കിഴക്കൻ മേഖലയിൽ ഇതുമായി ബസ്സ്പ്പെട്ടം ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അനുച്ഛേദം നീക്കം ചെയ്യില്ലെന്ന് അദ്ദേഹൃ് പറഞ്ഞു

ഇതിലൂടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനാകുമെന്നും ശ്രീ സിങ് വൃക്തമാക്കി

ഗുവാഹട്ടിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ അസം ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ദേശീയ പൌരത്വ പട്ടികയിൽ പിഴവുണ്ടെങ്കിൽ അത് തിരുത്തി ് സംസ്ഥാനത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി ലേഖി വൃക്തമാക്കി

ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതോ അല്ലാത്തതോ ആയ എല്ലാ വിദേശ മാധ്യമ പ്രവർത്തകർക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ അസ്സം സന്ദർശിക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ടിറ്റർ സന്ദേശത്തിലൂടെ അറിയിച്ചു അസ്സം സന്ദർശിക്കുന്നതിന് വിദേശ മാധ്യമ പ്രവർത്തകർക്ക് സംരക്ഷിത മേഖലാ പെർമിറ്റോ നിരോധിത മേഖലാ പെർമിറ്റോ വേണ്ടതില്ലെന്നും ആഭ്യന്തരവക്താവ് അറിയിച്ചു

ഇതു സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും മാന്യമ വാസ്തവവിരുദ്ധവുമാണെന്നും മന്ത്രാലയം ട്വിറ്ററർ സന്ദേശത്തിൽ പറഞ്ഞു

ക്ട്രിഞ്ഞ് ദിവസം രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ നഗരത്തിന്റെ താഴ്ച്ന്ന് പ്രെദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്

മഴ വിമാന സർവ്വീസുകളേയും ബാധിച്ചിട്ടുണ്ട്

ജമ്മു കശ്മീരിൽ നടപ്പാക്കാനാവുന്ന പുതിയ പരിഷ്ക്കാരങ്ങളും രീതികളും പരിശോധിക്കുകയാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശം സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കശ്മീർ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സുസ്ഥിരമായ ജീവനോപാധികൾ സാധ്യമാക്കുന്നതിനാണ് സന്ദർശനത്തിൽ പ്രാധാന്യം നൽകുക താഴെക്കിടയിൽ നിന്നുള്ള സാമൂഹിക വികസനം പരിസ്ഥിതി സൌഹൃദ വിനോദ സഞ്ചാരം മുള കൊണ്ടുള്ള വീടുകൾ തുടങ്ങിയവയ്ക്കും പ്രാമുഖ്യം നൽകും

ഇവർ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി ആഭ്യന്തരമന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി

ഈ വർഷം മേയ് ഒന്നിന് ഐക്യരാഷ്ട്ര സഭ സുരക്ഷ കൌൺസിൽ മസൂദ് അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ആഭ്യന്തരവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാക് ദക്ഷിണേഷ്യൻ ഡയറക്ടർ ജനറലുമായി ചർച്ച നടത്തി വിദേശ ഇന്ത്യൻ പൌരത്വ കാർഡുള്ള ഇന്ത്യൻ വംശജർക്കും കർതാർപൂറിലെ ഗുരുദ്വാര സന്ദർശിക്കാമെന്ന് യോഗത്തിൽ തീരുമാനമായി വിശേഷ ദിവസങ്ങളിൽ പാക് അനുമതി പ്രകാരം കൂടുതൽ തീർത്ഥാടകർക്ക് ഇവിടം സന്ദർശിക്കാം

അന്താരാഷ്ട്ര അതിർത്തി വരെയുള്ള നാലുവരി ദേശീയ പാത വികസനം ഇന്ത്യയിൽ പുരോഗമിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ ഇത് പൂർത്തിയാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി എഫ് സ്ഥാനാർത്ഥി ജോസ്ടോം എൻ

സ്ഥാനാർത്ഥി എൻ ഹരി എന്നിവർക്ക് പുറമേ കേരള കോൺഗ്രസ് എമ്മില്ലെ ജോസഫ് വിഭാഗം നേതാവ് ജോസഫ് കണ്ടത്തിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക്ക് കൽകി കേരള കോൺഗ്രസ് എം ന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ രൂണ്ട്രീലി സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ജോസ്ടോം പാർട്ടി സ്മാനാർത്ഥിയായും സ്വതന്ത്രനായും പത്രിക നൽകി അതേസമയം ജോസ്ട്ട്രോമീന് രണ്ടിലചിഹ്നം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പി

ഹരിയാനയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ഇന്ന് ന്യൂഡൽഹിയിൽ വൃക്തമാക്കിയതാണ് ഇക്കാര്യം

ഇന്ത്യൻ വിദേശകാര്യാലയങ്ങളുടെ സുരക്ഷയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഭീഷണി സൃഷ്ടിക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ ലണ്ടനിൽ ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഔദ്യോഗിക വക്താവ് പറഞ്ഞു

ബില്ലിനെതിരെ കഴിഞ്ഞ മൂന്നുമാസക്കാലമായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കിടെയാണ് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് കാരീലാം ബിൽ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കൃപ്രിലിലാണ് ബിൽ കൊണ്ടു വന്നത്

പ്രക്ഷോഭകാരികളുടെ പ്രധാനപ്പെട്ട അഞ്ച് ആവശ്യങ്ങളിൽ ഒന്ന് കുറ്റവാളികളെ കൈമാറുന്ന ബിൽ മരവിപ്പിക്കുക എന്നതായിരുന്നു

ഓപ്പണർ ശിഖർ ധവാൻ പ്രശാന്ത് ചോപ്ര എന്നിവരാണ് ക്രീസിലുള്ളത്